എസ് ആർ

സി ഹ്രസ്വ ദൂര സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കും

കെ ശശീന്ദ്രൻ

സി സെക്കൻഡ് ക്ലാസ് പാസഞ്ചർ ട്രെയിനുകൾ ഓടിത്തുടങ്ങുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ ത റിയാദിൽ നിന്ന് ഇന്നലെ രാത്രി കരിപ്പൂരിലെത്തിയ എയർഇന്ത്യ വിമാനത്തിൽ കോവിഡ് ലക്ഷണം കണ്ടെത്തിയ ഒരാളെ മെഡിക്കൽ കോളജ് ആശുപത്രിയിലേക്ക് മാറ്റി

ത റേഷൻ കടകൾ വഴി പലവ്യഞ്ജന കിറ്റുകളുടെ വിതരണം നാളെയും തുടരുമെന്ന് മന്ത്രി പി തിലോത്തമൻ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് കെ എസ്

ടി സി ഹ്രസ്വ ദൂര സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് മന്ത്രി എ

യാത്രക്കാരുടെ ആവശ്യവും തിരക്കും അനുസരിച്ച് രാവിലെ ഏഴു മുതൽ വൈകീട്ട് ഏഴു വരെയാണ് സർവീസ്

സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുചിയാക്കിയ ശേഷം ബസിന്റെ പുറകുവശത്തെ വാതിലിലൂടെ വേണം അകത്തു കയറാൻ മുൻവാതിലിലൂടെ പുറത്തിറങ്ങണം യാത്രക്കാർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും മന്ത്രി അറിയിച്ചു

എസ്

സി ബസ്സുകളിൽ ക്യാഷ്ലെസ്സ് യാത്രയ്ക്ക് നൂതന സംരംഭത്തിന് തുടക്കമായി റീചാർജ്ജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന യാത്രാ കാർഡുകൾ നടപ്പിലാക്കുന്നതിന്റെ ട്രയൽ റൺ സെക്രട്ടറിയേറ്റിൽ മന്ത്രി എ

സി സെക്കൻഡ് ക്സാസ് പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ ട്വിറ്ററിൽ അറിയിച്ചു രാജ്യത്തെ ചെറിയ നഗരങ്ങളേയും പട്ടണങ്ങളേയും ബന്ധിപ്പിച്ചായിരിക്കും പ്രതിദിന സർവീസെന്ന് റെയിൽവേ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു നിലവിൽ സർവീസ് നടത്തുന്ന ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകൾക്കും എ

എല്ലാ വിഭാഗം യാത്രക്കാർക്കും ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം രുമ ന്യൂഡൽഹിയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് നോൺ എ സി ട്രെയിൻ ഇന്നു വൈകിട്ട് ആറു മണിക്ക് യാത്ര തിരിക്കും

ബംഗളൂരുവിൽ നിന്ന് നാളെ മുതൽ ദിവസേന നോൺ എ സി ചെയർകാർ സർവീസ് ആരംഭിക്കും രുര തിരുവനന്തപുരം സെൻട്രൽ റെയിൽവെ സ്റ്റേഷനിൽ നിന്നും ജമ്മു കശ്മീരിലെ ഉദംപൂരിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് വൈകിട്ട് ഏഴുമണിക്ക് പുറപ്പെടും ജമ്മു കശ്മീർ ലഡാക്ക് പഞ്ചാബ് ഹിമാചൽപ്രദേശ് സംസ്ഥാനങ്ങളിലെ യാത്രക്കാരാകും ട്രെയിനിലുണ്ടാവുക

ഇയാളെ കോഴിക്കോട് ഗവ

വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള തിരുവനന്തപുരം സ്വദേശിയേയും കോഴിക്കോട് ഗവ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്

നാളെ ലണ്ടൻ മനില ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രവാസികളുമായി കൊച്ചിയിൽ വിമാനങ്ങൾ എത്തിച്ചേരും രുഭ ലോകത്ത് കൊറോണ ബാധിതരുടെ എണ്ണം അരക്കോടിയിലേക്ക്

നിരക്കിൽ തുടർച്ചയായ വർധനയാണ് ഉണ്ടാകുന്നത്

ലക്ഷം പേരിലെ മരണനിരക്കിന്റെ കാര്യത്തിൽ ആഗോളനിലയേക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് ഇന്ത്യ

തുടർച്ചയായി മൂന്നാം ദിവസവും രണ്ടായിരത്തിലേറെ കൊറോണ കേസുകളാണ് മഹാരാഷ്ട്രയിൽ സ്ഥിരീകരിക്കുന്നത്

കണ്ണൂരിൽ അഞ്ചും മലപ്പുറം ജില്ലയിൽ മൂന്നും ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇന്നലെ ആരുടേയും പരിശോധനാ ഫലം നെഗറ്റീവായില്ല

ജില്ലയിലെ പാനൂർ നഗരസഭയും ചൊക്സി മയ്യിൽ പഞ്ചായത്തുകളും ഹോട്ട് സ്പോട്ടിൽ ഉൾപ്പെടുത്തി

ഇതോടെ എറണാകുളത്ത് ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശികളുടെ എണ്ണം രണ്ടായി

രുമ കണ്ടയിൻമെന്റ് സോണുകളിൽ നിന്ന് പുറത്തേക്ക് യാത്ര അനുവദിക്കില്ലെന്ന് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു

രുമ കൊല്ലം ജില്ലയിൽ നിലവിൽ ഏഴുപേരാണ് ചികിത്സയിലുള്ളത്

രുഭ മുതലമടയിലെ കോവിഡ് സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലായിരുന്ന രമ്യ ഹരിദാസ് എം പി കെ ബാബു എം

എ മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി സുധ എന്നിവരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

റേഷൻ കടകളിൽ ഇന്നു വിതരണം പൂർത്തീകരിച്ച് ബാക്കി വരുന്നവ സപ്പൈകോ വിപണനശാലകൾ വഴി വിതരണം ചെയ്യുന്നതിനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്

ദേദ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പ്രകാരം ഈ മാസത്തെ അരി കടല ചെറുപയർ എന്നിവ റേഷൻ കടകൾ വഴി നാളെ മുതൽ വിതരണം ചെയ്യും

ഏപ്രിൽ മാസത്തെ കടല പയർ വിഹിതം വാങ്ങാത്ത കാർഡുടമകൾക്ക് മെയ് മാസത്തെ വിഹിതം ഉൾപ്പെടെ രണ്ടു കിലോ കടല പയർ ലഭിക്കുമെന്ന് സിവിൽ സപ്പൈസ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു രുമ നാടിന് അനുയോജ്യമായ വ്യവസായങ്ങളെ ആകർഷിക്കുന്നതിനും വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി

കൊവിഡ് പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തൊഴിൽ മേഖലയുടെ വികസനം എന്ന വിഷയത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് കേരള ചാപ്റ്റർ സംഘടിപ്പിച്ച വെബിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുമ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉം പുൻ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബംഗാളിൽ തീരം കടക്കും പശ്ചിമ ബംഗാളിലെ ദക്ഷിണ ദിഖയ്ക്കും ബംഗ്ലാദേശിലെ ഹത്തിയ ദ്വീപുകൾക്കും ഇടയിലാണ് ചുഴലിക്കാറ്റ് കരകടക്കുക

ബംഗാളിലെയും ഒഡീഷയിലെയും ജില്ലകളിൽ നിന്ന് തീരദേശ ലക്ഷക്കണക്കിനാളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി